കർഷകരെ മോചിപ്പിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ പുതിയ കാർഷിക നിയമങ്ങളെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ

നടപടികളെക്കുറിച്ച് കേന്ദ്രം പ്രത്യേക്ക് മ്മാർഗ്ഗരേഖ പുറത്തിറക്കി

ഉഭയകക്ഷി ധാരണ

തകർത്ത് മുംബൈ ഇന്ത്യൻസ്

കർഷകരുമാരും വിദഗ്ദ്ധരുമായി വിശദമായ ചർച്ച നടത്തിയിരുന്നതായും അവർ ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്ത് എവിടെയും സ്വന്തം താൽപ്പരൃമനുസരിച്ച് വിളകൾ വിറ്റഴിക്കാൻ കർഷകർക്ക് അവസരമൊരുങ്ങുകയാണ്

കൃഷിക്കുമേൽ വ്യാപാരികൾക്ക് അവകാശം കൈവരുമെന്ന വാദത്തിന് അടിസ്ഥാനമില്ല പല രാഷ്ട്രീയ കക്ഷികളും പുതിയ കാർഷിക നിയമത്തിളൂല വൃവസ്ഥകൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിനിമം താങ്ങുവില സമ്പ്രദായം തൂട്ടിരുമെന്നും മന്ത്രി പറഞ്ഞു

മതപരമായ ആരാധന മേളകൾ സാംസ് കാരിക പരിപാടികൾ എന്നിവയ്ക്കായി ധാരാളം പേർ ഒത്തുകൂടുന്ന കാലയളവാണ് ഡിസംബർ ഒടുവിൽ വരെ അണുബാധ പടരാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധ നടപടികൾ പാലിക്കേണ്ടത് പ്രധാനമാണെന്ന് മന്ത്രാലയം അറിയിച്ചു

ശാരീരിക അകലം പാലിക്കൽ ശരീര ഊഷ്മാവ് പരിശോധന ശുചിത്വം എന്നിവയ്ക്കായി വിശദമായ പദ്ധതി തയ്യാറാക്കാനും മന്ത്രാലയം സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു

കോവിഡ് മുക്തി നിരക്കിലും രാജ്യം പുരോഗതി നേടി

ആർ പരിശോധന കൂടി നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

സി എം ആർ സർവേ അനുസരിച്ച് കേരളത്തിലെ കോവിഡ് വ്യാപനം ദേശീയ ശരാശരിയെക്കാൾ കുറഞ്ഞ നിരക്കിലാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു

സ്ക്യൂസ്പ്പാന്ന സർക്കാരിന്റെ കീഴിലോ കോവിഡ് പ്രത്യേക ചിക്ടിത്സ്മ കേന്ദ്രങ്ങളിലോ സേവനം അനുഷ്ഠിച്ചിട്ടില്ലാത്തതിനാൽ നഷ്ട്രപരിഹാരം നൽകാനാവില്ലെന്ന് മഹാരാഷ്ട്ര ആരോഗൃവകുപ്പ് ്യമേധാവി അറിയിച്ചു

സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് രോഗികളുടെ പരിചരണം ഉത്തരവാദിത്തതോടെ നടത്തുന്ന ഡോക്ടർമാരെ കോവിഡ് പോരാളികളായി കണ്ട് നഷ്ടപരിഹാര തുക നൽകണമെന്ന് ഐ

എ ആവശ്യപ്പെട്ടു

പുതുക്കിയ വില ഉടൻ നിലവിൽ വരുമെന്ന് മഹാനഗർ ഗ്യാസ് അറിയിച്ചു

ഹോങ്കോങ്ങിന്റെ സ്പാത്യന്ത്യത്തെ മാനിക്കണമെന്നും സ്വയംഭരണ പദവിയും അവകാശ്രങ്ങളും അംഗീകരിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഉയ്ഗർ വിഭാഗക്കാരെ തടവിലാക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സിൻജിയാങ്ങിൽ യു എൻ മനുഷ്യാവകാശ്രൂമേധാവി മിഷേൽ ബാഷ്ലെറ്റ് ഉൾപ്പെടെയുള്ള സ്വതന്ത്ര നിരീക്ഷകരെ അനുവദിക്കണമെന്നും യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും ചൈനയോട് ആവശ്യപ്പെട്ടു

എന്നിലെ ജർമൻ സ്ഥാനപതി ക്രിസ്റ്റോഫ് ഹ്യൂസ്ജെനാണ് പ്രസ്താവന വായിച്ചത്

വിദേശകാരൃ മന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി മൈക്ക് പോംപിയോയുമായി കൂടിക്കാഴ്ച നടത്തി

ദ്ധിദിന ജപ്പാൻ സന്ദർശനത്തിനായി എത്തിയ ശ്രീ ജയ്ശങ്കർ കാഡ് അംഗരാഷ്ട്രങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ സംയുക്ത യോഗത്തിനു മുന്നോടിയായാണ് അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി മൈക്ക് പോംപിയോയുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവിധ മേഖലകളിൽ ഇന്ത്യ അമേരിക്ക സഹകരണത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയിൽ താൻ സന്തുഷ്ടനാണെന്നും അദ്ദേഹം ടിറ്ററിലൂടെ അറിയിച്ചു ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനവും സുസ്ഥിരതയും വളർച്ചയും ഉറപ്പാക്കാൻ ഇരുരാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കാഡ് അംഗരാഷ്ട്രങ്ങളായ ഓസ്ട്രേലിയയും ജപ്പാനും ഇന്തൃയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ സാങ്കേതികവിദ്യ വിതരണ ശൃംഖല എന്നിവയിൽ നിലവിൽ വലിയ തോതിൽ ബ്ലിക്ഷേപം നടത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കരസേനാ മേധാവി ജനറൽ എം

നരവനെ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ളെ എന്നിവർ ഈ മാസം നാല് അഞ്ച് തീയതികളിൽ മ്യാൻമർ സന്ദർശിച്ചിരുന്നു

തരുൺകുമാറിന്റെ സഹായത്തോടെ ഇരുവരും നിരോധിത മരുന്നു വാങ്ങാനുള്ള കുറിപ്പടി തയ്യാറാക്കിയെന്ന നടി റിയ ചക്രവർത്തിയുടെ പരാതിയെ തുടർന്നാണ് കേസെടുത്തത്

വനിതകളിൽ മൂന്നാം സീഡ് എലിന സ്വിതോലിനയെ നാദിയ പൊഡൊറോസ്ക നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി

യു വും സീറ്റ് ധാരണയിലെത്തി

യുവിന്റെ ഏഴ് സീറ്റ് ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയ്ക്ക് നൽകിയതായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ പട്നയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

മിയാമിയിൽ നടക്കുന്ന സംവാദം മികച്ചതായിരിക്കുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു കോവിഡ് രോഗബാധിതനായി ചികിത്സയിലിരുന്ന ട്രംപ് വൈറ്റ്ഹൌസിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് ഇക്കാരൃം വൃക്തമാക്കിയത്

കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ട്രംപിനും പത്നി മെലാനിയയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചത്